പ്രമുഖ നേതാക്കൾ ഇന്നും അവസാനവട്ട പ്രചാരണത്തിൽ

ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർഥനാ ശുശ്രൂഷകൾ വാർത്തകൾ വിശദമായി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി ഒരു പകൽമാത്രം

നക്സൽ ബാധിതമെന്ന് കണ്ടെത്തിയ മണ്ഡലങ്ങളിൽ വൈകിട്ട് ആറിന് പ്രചാരണം അവസാനിപ്പിക്കണം പ്രമുഖ മുന്നണികളും പാർട്ടികളും ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയായിരുന്നു പ്രചാരണരംഗം കൊഴുപ്പിച്ചത്

ഡി എ യ്ക്കുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിങും ധനമന്ത്രി നിർമലാ സീതാരാമനും കേന്ദ്രമന്ത്രിമാരായ പ്രഹ്ളാദ് ജോഷി പീയുഷ് ഗോയൽ ഗിരിരാജ് സിങ് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ ബി ജെ

അധ്യക്ഷൻ ജെ

നദ്ദ യു

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരടക്കം പ്രമുഖർ രംഗത്തിറങ്ങിയിരുന്നു

ഡി എഫിനുവേണ്ടി രാഹുൽഗാന്ധി പ്രിയങ്കാ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ കെ

വേണുഗോപാൽ എ

ആന്റണി ഡി

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ മിക്ക മണ്ഡലങ്ങളിലും പൊതു പരിപാടികളിൽ പങ്കെടുത്തു

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് ബൃന്ദാ കാരാട്ട് എസ് രാമചന്ദ്രൻപിള്ള തപൻസെൻ എം

ബേബി സി

ജനറൽ സെക്രട്ടറി ഡി രാജ സി

ഐ നേതാവ് ആനിരാജ ബിനോയ് വിശ്വം തുടങ്ങിയവർ പ്രചാരണ രംഗത്തിറങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളപര്യടനവുമായി മിക്ക മണ്ഡലങ്ങളിലുമെത്തി ദേശീയ നേതാക്കൾക്കൊപ്പം മുന്ന് മുന്നണികളുടെയും സംസ്ഥാന പ്രാദേശിക നേതാക്കളും പ്രചാരണത്തിന് നേതൃത്വം നൽകി കൊട്ടിക്കലാശവും ക്കൈക്ക് റാലിയും പൂർണമായി നിരോധിച്ച സാഹചര്യത്തിൽ കാര്യമായ ആൾക്കൂട്ടമോ ബഹളമോ ഇല്ലാതെ പ്രചാരണം സമാപിക്കുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ അണികളുടെ ആവേശത്തെ എത്രത്തോളം നിയന്ത്രിക്കാനാവും എന്ന കാര്യത്തിൽ രാഷ്ട്രീയപാർട്ടികൾ മനസ്സ് തുറന്നിട്ടില്ല ടെട കേരളത്തോടൊപ്പം ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലും പ്രചാരണം ഇന്ന് വൈകിട്ട് സമാപിക്കും അസമിലെയും പശ്ചിമബംഗാളിലെയും മൂന്നാംഘട്ട പോളിങ്ങിന്റെ പ്രചാരണവും വൈകിട്ട് അവസാനിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് പുറമേ കേരളത്തിൽ മലപ്പുറം തമിഴ്നാട്ടിൽ കന്യാകുമാരി ലോക്സഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പും ചൊവ്വാഴ്ചയാണ് ടെട ഇന്ത്യയിൽ ആകമാനം നടക്കുന്നത് കോമ്രേഡ് കോൺഗ്രസ് സഖ്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിലയിരുത്തി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനാണ് ഇവർ പ്രാധാന്യം നൽകുന്നതെന്നും വോട്ടുബാങ്കായി മാത്രമാണ് ജനങ്ങളെ ഇരുകൂട്ടരും കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിക്കും പണത്തിനുംവേണ്ടി അവർ കൈകോർക്കുകയാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി വയനാട് മീനങ്ങാടിയിൽ എൻ ഡി എ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അമിത്ഷ ടെട കോഴിക്കോട് നോർത്ത് സൌത്ത് മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനായി അമിത്ഷാ കോഴിക്കോട് നഗരത്തിലും റോഡ് ഷോ നടത്തി

എ സ്ഥാനാർഥിയുടെ പ്രചാരണത്തിനുവേണ്ടിയാണ് നിർമലാ സീതാരാമൻ കുന്നംകുളത്തെത്തിയത് റോഡ് ഷോയിലും അവർ പങ്കെടുത്തു

എഫിനും യു ഡി എഫിനും സാധിച്ചില്ലെന്ന് ബി ജെ

ദേശീയ വക്താവ് ഗോപാലകൃഷ്ണ അഗർവാൾ കൊല്ലത്ത് പറഞ്ഞു കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് തിരികെയെത്തിയ അഞ്ചരലക്ഷത്തോളം പ്രവാസികൾക്ക് ഉപജീവനമാർഗം കണ്ടെത്താൻ സഹായിക്കുന്നതിലും എൽ ഡി എഫ് ഗവൺമെന്റ് പരാജയമാണെന്ന് അഗർവാൾ ആരോപിച്ചു

ഡി എ കുന്നത്തൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് മഹാസമ്മേളനം ഭരണിക്കാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടെട ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്ന കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ദൈവവിശ്വാസത്തെ അട്ടിമറിച്ചെന്ന് ബി ജെ

ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ കുറ്റപ്പെടുത്തി തിരൂരിൽ എൻ

എ തിരഞ്ഞെടുപ്പ് റാലി സമാപനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

ഡി എഫ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ എത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഇന്നും ജില്ലയിൽ തുടരും ഇന്നലെ കൊയിലാണ്ടി പുറമേരി എന്നിവിടങ്ങളിലെ പ്രചാരണത്തിൽ അദ്ദേഹം പങ്കെടുത്തു ഇന്ന് ഉച്ചയോടെ കോഴിക്കോട് ബീച്ചിലെ റോഡ് ഷോയിൽ രാഹുൽഗാന്ധി പങ്കെടുക്കും വയനാട്ടിലെ വെള്ളമുണ്ടയിൽ യു ഡി എഫ്

പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളടക്കം യു ഡി എഫ് നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും വൈകീട്ട് തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിലും രാഹുൽഗാന്ധി പ്രചാരണത്തിനെത്തും ടെട കിറ്റുകൾകൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ സി

എമ്മും പിണറായിയും കോടികൾ കൈക്കലാക്കുന്നത് ആരും അറിയാതെ പോകരുതെന്ന് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി

വയനാട് വാളാട് യു ഡി എഫ് സ്ഥാനാർഥിയുടെ പ്രചാരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശിവകുമാർ ടെട മാനന്തവാടിയിലെ എൽ ഡി എഫ് പ്രചാരണത്തിന് സി

എം

വൈകിട്ട് റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന ബൃന്ദാ കാരാട്ടിനൊപ്പം പ്രമുഖ നേതാക്കളും പങ്കുചേരും ടെട സ്ഥാനാർഥികളുടെ പ്രചാരണത്തിനിടെ തിരൂർ കൂട്ടായിയിൽ ഇരുവിഭാഗങ്ങൾ ഏറ്റുമുട്ടി ഒരു പ്രചാരണ വാഹനം തകർത്തു

മറ്റൊരിടത്ത് പ്രചാരണ ഓഫീസും ബാനറുകളും തകർത്തിട്ടുമുണ്ട്

ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ

സംസ്ഥാനത്തെ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കിത്തിരിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്

ക്രൈംബ്രാഞ്ച് വിജിലൻസ് റെയിൽവേ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരെയും സുരക്ഷക്കായി ഏർപ്പെടുത്തി

നക്സൽബാധിത മേഖലകളിൽ പ്രത്യേക ഓപ്പറേഷൻഗ്രൂപ്പും തണ്ടർബോൾട്ടും സുരക്ഷ ഉറപ്പാക്കും ടെട ഇടുക്കി ജില്ലയിലെ കള്ളവോട്ട് തടയാൻ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അടച്ച് കേന്ദ്രസേനയെ വിന്യസിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മിഷൻ ഹൈക്കോടതിയെ അറിയിച്ചു ജില്ലയിലെ യു ഡി എഫ് സ്ഥാനാർഥികൾ നൽകിയ ഹർജിയിലാണ് കമ്മിഷൻ നിലപാട് അറിയിച്ചത്

സ്വന്തം ജില്ലകളിൽ വീഡിയോ ചിത്രീകരണം അനുവദിക്കണമെന്ന സ്ഥാനാർഥികളുടെ ആവശ്യം തിരഞ്ഞെടുപ്പ് കമ്മിഷൻ നിരസിച്ചിരുന്നു ചിലർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്നും അതിർത്തി കടന്ന് ഇവർ കേരളത്തിൽ വോട്ടുചെയ്യാനെത്തുമെന്നും സ്ഥാനാർഥികൾ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു ഇതേത്തുടർന്നാണ് അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കമ്മിഷൻ അറിയിച്ചത് ടെടി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടുചെയ്യാനെത്തുന്ന ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ക്രമീകരണങ്ങളിൽ വീഴ്ച വരുത്തിയാൽ വകുപ്പു തല നടപടികളും ക്രിമിനൽ പ്രോസിക്യൂഷനും ഉണ്ടാകുമെന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ് എച്ച്

കാഴ്ച പരിമിതരായ വോട്ടർമാർക്ക് പ്രിസൈഡിംഗ് ഓഫീസർമാർ ബ്രെയിലി ഡമ്മി ബാലറ്റ് ഷീറ്റ് വായിക്കാനായി കൊടുക്കണം

യോഗ്യരല്ലാത്തചിലർ നിയമവിരുദ്ധണായി ആരോഗ്യപ്രവർത്തകരെന്നപേരിൽ ലിസ്റ്റിൽ ഇടംനേടിയതായി കേന്ദ്ര ആരോഗ്യസെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ച കത്തിൽ പറഞ്ഞു